സാമ്പിളുകൾ പരിശോധിച്ചത്യി ഐ സി എം ആർ

ഇത് പ്രകാരം രാജ്വത്തെത്തിയാൽ ഇവർ രണ്ടാഴ്ചത്തെ നിർബന്ധിത കാറന്റീനിൽ കഴിയേണ്ടതാണ് ഇത് സംബന്ധിച്ച സമ്മതപത്രം വിമാനത്തിൽ കയറുന്നതിനു മുൻപായിത്തന്നെ എല്ലാ യാത്രക്കാരും നൽകേണ്ടതാണ്

യാത്രിക്ടർക്ക് ആവശ്യമായ മാർഗനിർദേശങ്ങൾ ടിക്കറ്റുകൾക്കൊപ്പം ബന്ധപ്പെട്ട് ഏജ്ൻസികൾ നൽകേണ്ടതാണ്

വിമാനത്താവളങ്ങൾ തുറമുഖങ്ങൾ രാജ്യ അതിർത്തികൾ എന്നിവിട ങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് യാത്രക്കാർ സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഫോം നൽകേണ്ടതാണ്

വിമാനത്താവളങ്ങളിലും വിമാനങ്ങൾക്കുള്ളിലും ആവശ്യമായ അണുനശീകരണം ഉറപ്പാക്കേണ്ടതാണ് യാത്രയിൽ ഉടനീളം സാമൂഹിക അകലം പാലിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് യാത്ര സമയത്ത് യാത്രികരും ജീവനക്കാരും മാസ്കുകൾ ഉപയോഗി ക്കണം

രാജ്യത്ത് എത്തുന്ന എല്ലാ യാത്രക്കാർക്കും തെർമൽ സ്ക്രീനിങ് ഏർപ്പെടുത്തുന്നതാണ് രോഗലക്ഷണങ്ങൾ ഉള്ളവരെ ഉടൻ തന്നെ ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റും മറ്റു യാത്രക്കാരെ സാസംഥാന കേന്ദ്രഭരണ പ്രദേശ ഭരണകൂടങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ള ക്വാറന്റീൻ കേന്ദ്രങ്ങളിലേക്ക് മറ്റും

ഇതിന്റെ പാശ്ചാത്തലത്തിൽ ആഭ്യന്തര യാത്രക്കാർക്കായുള്ള മാർഗനിർദേശങ്ങൾ ആരോഗൃമന്ത്രാലയം പുറത്തിറക്കി

ഭാസ്കർ

യാത്ര തുടങ്ങുന്ന പോയിന്റു കളിൽ തെർമൽ സ്കാനിംഗ് സൌകര്യം റ്റുർപ്പെടുത്താൻ സംസ്ഥന ങ്ങൾക്ക് നിർദേശം നൽകിയിട്ടുണ്ട്

യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ വിമാനത്ത്രൂപ്പള്ങൾ റെയിൽവെ സ്റ്റേഷനുകൾ ബസ് ടെർമിനലുകൾ എന്നിവിടങ്ങളിൽ കോവിഡ് പ്രതിരോധ നടപടികളെ പ്പറ്റി ബോധവത്കരണം നടത്തണമെന്ന് നിർദേശത്തിൽ പറയുന്നു

വിമാനത്താവള ങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് ടെർമിനലുകളിലും സാമൂഹിക അകലം ഉറപ്പാക്കണം ഇവിടങ്ങളിൽ കൃത്യമായ ഇടവേള കളിൽ അണുനശീകരണം നടത്തേണ്ടതാണ് സോപ്പുകൾ സാനിറ്റൈ സറുകൾ എന്നിവയുടെ ലഭ്യതയും ഉറപ്പാകേണ്ടതാണ് യാത്ര അവസാനിക്കുന്ന പോയിന്റുകളിലും തെർമൽ സ്ക്രീനിംഗ് ഉറപ്പാക്കണ മെന്ന് നിർദേശത്തിൽ പറയുന്നു രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവർക്ക് വീടുകളിൽ പോകാവുന്നതാണ്

തെർമൽ സ്ക്രീനിങ്ങിൽ രോഗലക്ഷണങ്ങൾ ഉള്ളവരെ ഏറ്റവും അടുത്തുള്ള ആരോഗ്യകേന്ദങ്ങളിൽ തുടർ പരിശോധനകൾക്ക് വിധേയമാക്കും ഗുരുതര രോഗലക്ഷണങ്ങൾ ഉള്ളവരെ കോവിഡ് ആശുപത്രികളിൽ വിദഗ്ദ്ധ ചികിത്സയ്ക്ക് വിധേയരാക്കും കുറഞ്ഞ രോഗലക്ഷണങ്ങൾ ഉള്ളവർക്ക് വീടുകളിലോ പ്രത്യേക കോവിഡ് കെയർ സെന്ററുകളിലോ നിരീക്ഷണത്തിൽ കഴിയാനുള്ള സൌകര്യം ഉണ്ടായിരിക്കുന്നതാണ്

പോസിറ്റീവ് ആയവർക്ക് കോവിഡ് കെയർ സെന്ററുകളിൽ ചികിത്സ തുടരുന്നതാണ് നെഗറ്റീവ് ആയവർക്ക് വീടുകളിൽ പോകാൻ അനുവാദം നൽകുന്നതാണ് ഇവർ ഒരാഴ്ചത്തെ നിരീക്ഷണത്തിൽ തുടരണം അതാത് സംസ്ഥാനങ്ങളിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി സംസ്ഥാന ട്ട്രണ കൂടങ്ങൾക്ക് സ്വന്തം ക്വാറന്റീൻ നിരീക്ഷണ ചട്ടങ്ങൾക്ക് രൂപ്പർന്ൻകാമെന്നും മന്ത്രാലയം വ്യക്തമാക്കി

അതേസമയം കൂടുതൽ സർക്കാർ സ്വകാര്യ ലബോറട്ടറികൾക്കും അംഗീകാരം നൽകിക്കൊണ്ട് ഐ സി എം ആർ പരിശോധനാ സൌകരൃം വർദ്ധിപ്പിക്കുകയാണ്

യാത്രക്കാർക്കായി ഹോട്ടൽ മുറികളടക്കം ക്രമീകരണങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്

വന്ദേഭാരത് ദൌത്യത്തിന്റെ രണ്ടാം ഘട്ടത്തിന്റെ രണ്ടാം പാദത്തിൽ കൂടുതൽ വിമാനങ്ങൾ സർവ്വീസ് നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്

ഒരു തമിഴ്നാട് സ്വദേശിക്കും രോഗം സ്ഥിരീകരിച്ചു